ഭീകര പ്രവർത്തനം എന്നിവയിൽ നിന്ന് മുക്തമാക്കുവാൻ ലക്ഷൃംവെയ്ക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിന് ബി ജെ

ദേശീയ നിർവാഹക സമിതി അംഗീകാരം നൽകി

ലോക ഹിന്ദു കോൺഗ്രസ്റ്റ്റ്സ്മാപന സമ്മേളനത്തെ ഉപരാഷ്ട്രപതി എം

ജോക്കോവിച്ച് യുവാൻ മാർട്ടിൻ ഡെൽ പെട്രോയുമായി ഇന്ന് ഏറ്റുമുട്ടും

ജെ

ദേശീയ നിർവാഹക സമിതി യോഗത്തിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു് അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വം ചെറിയ പാർട്ടികൾ പോലും അംഗീകരിക്കുന്നില്ല അധികാര കസേരയിൽ ഇരിക്കുകയല്ല മറിച്ച് ജന നന്മയ്ക്കുവേണ്ടി പ്രവർത്തിക്കുകയാണ് ബി ജെ

യുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു

ജെ

ദേശീയ് നിർവാഹക സമിതിയോഗം അ അംഗീകാരം നൽകി ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച ബി ജെ

ദേശീയ നിർവാഹക സമിതിയോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധിക്കു ചെയ്തു

ജെ

നിഷേധാത്മക രാഷ്ട്രീയം കളിക്കുന്നവരോടൊപ്പം ജനങ്ങൾ ഉണ്ടാവില്ലെന്ന് പാർട്ടി വക്താവ് പ്രകാശ് ജാവദേക്കർ ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് രാജ്യത്തിന്റെ വികസനത്തെ കുറിച്ച് വൃക്തമായ ദർശനവും ്താൽപര്യവും സങ്കൽപവും ഉണ്ട്

അസമിലെ ദേശീയ പൌരത്വ ്രജിസ്റ്റർ പൌരന്മാർക്ക് എതിരല്ലെന്നും എന്നാൽ നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന തല്ലെന്നും ശ്രീ

ജെ പിക്ക് കഴിഞ്ഞു വെന്നും അദ്ദേഹം പറഞ്ഞു

സമ്മേളനത്തിനിടെ ഉപരാഷ്ട്രപതി വിവിധ രാഷ്ട്ര നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തുമെന്ന് ഉപരാഷ്ട്രപതിയുടെ സംഘത്തിലുള്ള ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് ഇത് നർമ്മദ നദീതീരത്തുള്ള ചെറുദ്ധീപായ സാധു ബേട്ടിൽ പ്രതിമയുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ്

രണ്ട് ദിവസമാണ് സമ്മേളനം

ഇ ഗവേണൻസ് ഭരണ സുതാര്യത ഉത്തരവാദിത്ത ഭരണം മുതലായവയിൽ ഊന്നിയ ഭരണ നിർവഹണ ത്തെക്കുറിച്ച് സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങൾ സമ്മേളനത്തിൽ പങ്കുവെയ്ക്കും

സൈപ്രസ് ബൾഗേരിയ ചെക്ക് റിപ്പബ്ലിക്ട് എന്നീ രാഷ്ട്രങ്ങളിലെ സന്ദർശനത്തിനായി കഴിഞ്ഞ ഞായറാഴ്ച യാണ് രാഷ്ട്രപതി യാത്ര തിരിച്ചത് മടക്ക യാത്രയ്ക്കുമുമ്പ് പ്രേഗിലെ തക്വറോവ തെരുവിൽ സ്ഥാപിച്ചിട്ടുള്ള രബീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമയിൽ രാഷ്ട്രപതി പുഷ്പാർച്ച നടത്തി ചെക്ക് റിപ്പബ്ലിക്കുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ടാഗോറിന്റെ സ്മരണാർത്ഥമാണ് തെരുവിന് തക്വറോവ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്

സമ്മേളനത്തിൽ ശ്രീമതി സുഷമ സ്വരാജ് റഷ്യൻ ഉപ പ്രധാനമന്ത്രി യൂറി ബോറിസോവിനോടൊപ്പം അദ്ധ്യക്ഷപദം പങ്കുവയ്ക്കും

മധ്യപ്രദേശിലെ ബൻസാഗർ അണക്കെട്ട് തുറന്ന് വിട്ടതിനാലാണ് സോൺ നദീ തീരത്തുള്ള റൊത്താഷ് ഭോജ്പൂർ ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയത്

സ്ഥിതിഗതികൾ വിലയിരുത്താൻ സംസ്ഥാന പ്രകൃതിവിഭവ മന്ത്രി രാജീവ് രഞ്ജൻ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചുചേർത്തിട്ടുണ്ട്

ഏക്ലാർ വിദ്യാർത്ഥികളും തങ്ങളുടെ കുടുംബത്തിലെ നിരക്ഷരരെ ് എഴുത്തും വായനയും പഠിപ്പിക്കണ മെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

വാജ്പേയിയുടെ ആഗ്രയിലുള്ള കുടുംബവീട് സ്മാരകമായി മാറ്റി വിനോദ സഞ്ചാര കേന്ദ്രത്തിലൂൾപ്പെടുത്താനും ഉത്തർപ്രദേശ് ഗവൺമെന്റ് തീരുമാനിച്ചു

ഇസ്താമാബാദിലെ ഐവാൻ ഇ സാദറിൽ നടന്ന ചടങ്ങിൽ പാക് ചീഫ് ജസ്റ്റിസ് മിയാൻ സാഖിബ് നിസാള സത്യവാചകം ചൊല്ലിക്കൊടുത്തു സേനാ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രതിനിധികൾ മറ്റ് പ്രമുഖർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു

കേരളത്തിൽ യു

എഫും എൽ

കേരളത്തിലെ പ്രളയ ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സാധാരണ ജീവിതത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും തടസം ഉണ്ടാകരുതെന്ന് കെ

സി പ്രസിഡന്റ് എം എം ഹസൻ അറിയിച്ചു

ഓപ്പണിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച് അർജന്റീനയുടെ ജുവാൻ മാർട്ടിൻ ഡെൽ പെട്രോയുമായി ഏറ്റു മുട്ടും

സെറീന വില്യംസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നവോമി കിരീടം സ്വന്ത മാക്കിയത്

ഗ്രൂപ്പ് എ യിൽ ആതിഥേയരായും ബ്ലഗ്ലാദേശും നേപ്പാളും പാകിസ്ഥാനും ഭൂട്ടാനുമാണ് ഉള്ളത്

പ്രവിശൃയിലെ ചെക് പോസ്റ്റിന് സമീപം ഇന്നലെ രാത്രിയാണ് ഭീകരർ വെടിവെയ്പ് നടത്തിയത്